കോവിഡ് വ്യാപനം നിയന്ത്രണ വിധേയമാക്കാൻ സംസ്ഥാനങ്ങൾ തമ്മിൽ സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി

കേരളത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കി

ആദ്യ മത്സരം ബാംഗ്ലുരുവും കൊൽക്കത്തയും തമ്മിൽ രണ്ടാം മത്സരത്തിൽ ഡൽഹി പഞ്ചാബിനെ നേരിടും

കോവിഡ് വ്യാപനം നിയന്ത്രണ വിധേയമാക്കാൻ സംസ്ഥാനങ്ങൾ തമ്മിൽ സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു ഔഷധങ്ങൾ ഓക്സിജൻ വെന്റിലേറ്റർ വാക്സിൻ തുടങ്ങിയവയുടെ ലഭ്യതയെപ്പറ്റി യോഗം വിലയിരുത്തി

വോയിസ് കഴിഞ്ഞ വർഷം ഇന്ത്യ ഒരുമിച്ച് കോവിഡിനെ പരാജയപ്പെടുത്തിയതാണെന്നും ഇനിയും അതേ തത്വങ്ങളിലുന്നി കൂടുതൽ വേഗത്തിലും ഏകോപനത്തോടെയും കോവിഡിനെതിരെ വിജയം ആവർത്തിക്കാൻ രാജ്യത്തിന് കഴിയുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ജനങ്ങളുടെ ആശങ്കകൾ സംബന്ധിച്ച് തദ്ദേശ ഭരണകൂടം കാര്യക്ഷമമായി പ്രവർത്തിക്കണമെന്നും പ്രധാനമന്തി ആവശ്യപ്പെട്ടു ആശുപത്രികളിൽ കോവിഡ് രോഗിക്ലൂൾക്കായുള്ള കിടക്കകൾ വർദ്ധിപ്പിക്കാൻ നടപടികൾ സ്വീകരിക്ക്ണ്ട്മെന്നും താല്ക്കാലിക ആശുപത്രികളിലൂടെയും ഐഐഐല്ലേ്ഷൻ കേന്ദ്രങ്ങളിലൂടെയും അധികം കിടക്കകൾ ഉറപ്പാക്കണ്മെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു

ഓക്സിജൻ വിതരണം ത്വരിതപ്പെടുത്തുന്നതിന് ആവശ്യമായ പ്ലാന്റുകൾ സജ്ജമാക്കാൻ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു

ഒരു ലക്ഷം ഓക്സിജൻ സിലിണ്ടറുകൾ സജ്ജമാണെന്നും അവ ഉടൻ സംസ്ഥാനങ്ങൾക്ക് ലഭ്യമാക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു വെന്റിലേറ്റർ സംവിധാനങ്ങളുടെ ലഭ്യത സംബന്ധിച്ചും പ്രധാനമന്ത്രി വിലയിരുത്തി പരിശോധന കണ്ടെത്തൽ ചികിത്സ എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ശ്രീ മോദി ആവശ്യപ്പെട്ടു ന്യൂസ് ഡസ്ക് ആകാശവാണി

രാജ്യത്ത് ഏറ്റവും കൂടിയ പ്രതിദിന രോഗ ബാധിയാണിത്

തദ്ദേശ സ്ഥാപനങ്ങളുമായി കൈക്കോർത്ത് യുദ്ധകാല അടിസ്ഥാനത്തിൽ നടപടികൾ ആരംഭിച്ചു എഴുപ്പൻ വാർഡ് സമിതി ദ്രുതപ്രതികരണ സേനാ അംഗങ്ങളെയ്ും പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കും കിലയുടെ നേതൃത്വത്തിൽ നാളെ ഉച്ചയ്ക്ക് ഇവർക്ക് ഓൺ ലൈനായി പരിശീലനം നൽകും

ആദ്യ മത്സരത്തിൽ ബാംഗ്ലൂൾ റോയൽ ചലഞ്ചേഴ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും

വോയിസ് മനുഷ്യ രാശി കാലങ്ങളായി ആർജ്ജിച്ചതും പിൻതുടരുന്നതുമായ സംസ്കാരം ചരിത്ര പ്രാധാനൃമുള്ള സ്മാരകങ്ങൾ സ്ഥലങ്ങൾ അവയുമായി ബന്ധപ്പെട്ട അനന്തരാവകാശം സംരക്ഷണം തുടങ്ങിയവ ലക്ഷ്യമിട്ടാണ് ലോക പൈതൃക ദിനം ആചരിക്കുന്നത്

സങ്കീർണ്ണമായ ഭൂതകാലം വൈവിധ്യമാർന്ന ഭാവി എന്നാണ് യുനസ്കോ ഈ വർഷത്തെ പൈതൃക്ക് ദ്രിന്മാചരണത്തിന് നൽകിയ വിഷയം കേരളത്തിന്റെ തനത്ത് ക്ലാരൂപങ്ങളായ കൂടിയാട്ടം മുടിയേറ്റ് എന്നിവയും യോഗ്യും താജ്മഹൽ ഉൾപ്പെടെയുള്ള ചരിത്ര സ്മാരങ്ങളും മറ്റും യൂൻസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് മന്റു ്ഷു പൈതൃകവും അതിന്റെ തുടർച്ചയായ പാരമ്പര്യവും ലോകമെമ്പാടും നിറയുന്ന സ്വത്താണ് മനുഷ്യ രാശിയിൽ സാംസ്കാരിക സൌഹൃദ ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുകയും നിലനിർത്തുകയും ചെയ്യാനുള്ള കൂട്ടായ ശ്രമം ലക്ഷ്യമിട്ടാണ് ലോക പൈതൃക ദിനം ന്യൂസ് ഡെസ്ക് ആകാശവാണി

പ്രചാരണപ്രവർത്തനങ്ങൾ ഊർജ്ജിതം